ചൈന സമാധാന കരാറുകൾ ലംഘിക്കുകയാണെന്നും ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കൂടുതൽ സേനാ വിന്യാസം നടത്തുകയാണെന്നും ഇന്ത്യ

ആത്മനിർഭർ ഉത്തർ പ്രദേശ് റ്റോസ്ഗ്ൾ അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് കൾഘാടനം ചെയ്യും

സി

എസ്

ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷ സംബന്ധിച്ച സൂപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തവ് ഇന്ന്

ചൈനയുടെ പ്രകോപനപരമായ നീക്കത്തെ തുടർന്ന് മേഖലയിൽ ഇന്ത്യ കൂടുതൽ സൈനികരെ അയച്ചതെന്നും പിന്നീട് സംഘർഷമുണ്ടായെന്നും ശ്രീ വ്യക്തമാക്കി

ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ചൈനയെ അറിയിച്ചിരുന്നു ജൂൺ ആറിന് നടന്ന ചർച്ചയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് പിന്മാറാമെന്ന് ചൈന വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും അത് ഉണ്ടായില്ല യഥാർത്ഥ നിന്ത്രണ രേഖയിൽ പുതിയ നിർമ്മിതികൾ ഉയർത്താനുള്ള ചൈനയുടെ ശ്രമവും സംഘർഷത്തിന് കാരണമായി നിലവിൽ ഇരു ഭാഗത്തും വൻതോതിൽ സൈനിക വിന്യാസം ഉണ്ടെന്നും സൈനിക നയതന്ത്രതല കൂടിക്കാഴ്ചകൾ തുടരുകയാണെന്നും വിദേശകാരൃ വക്താവ് അറിയിച്ചു യഥാർത്ഥ നിയന്ത്രണ രേഖ മാനിക്കുന്നത് മേഖലയിൽ സമാധാനം ഒരുക്കാൻ അനിവാരൃമാണെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖ മറികടക്കാൻ ഇന്ത്യ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും ശ്രീ അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കി

ഉത്തർ പ്രദേശിലേക്ക് തിരിച്ചെത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഉത്തൂർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മറ്റ് മന്ത്രിമാർ ് എന്നിവർ പങ്കെടുക്കും

വിശദാംശങ്ങളുമായി തിരുച്ചിറപ്പള്ളി ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ഡോ

സി എം ആർ

കേന്ദ്ര ആരോഗൃമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോവിഡ് പ്രതിരോധത്തിനായി മൂന്ന് സംസ്ഥാനങ്ങളും സ്വീകരിച്ച നടപടികൾ വിലയിരുത്തും

മെക്സിക്കോ റഷ്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്

മെയ് എട്ടിനാണ് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ സമുദ്ര സേതുവിന് സർക്കാർ തുടക്കം കുറിച്ചത്

കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് എന്നീ ആറ് ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് സമൂഹവൃാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രിയും മുന്നറിയിപ്പ് നൽകി

ബി എസ് ഇ ഐ സി എസ് ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷ സംബന്ധിച്ച സൂപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തവ് ഇന്ന്

ബി എസ്